കെ ശശീന്ദ്രൻ

പി യു പി സ്കൂളുകളുടെ ഘടനാപര മായ മാറ്റം ഹൈക്കോടതി അംഗീകരിച്ചു

എമാർ രാജി പ്രശ്നത്തിൽ സുപ്രിംകോടതിയിലെത്തി

കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് അറിയിച്ചു ഇതിന്റെ ആദ്യപടിയായി സംസ്ഥാന വ്യാപകമായി ബോധവത്കര ണം നടത്തും കോടതി വിധിയാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ ഉ ദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നലെ ഗതാഗത സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഈ ആവ ശ്യത്തിൽ പോലീസ് മേധാവിക്കും ഗതാഗത കമ്മീഷണർക്കും കത്ത് നൽകിയിരുന്നു

കേന്ദ്ര വിദ്യാഭ്യാസ അവാകശ്യനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എൽ

പി സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റം ഹൈക്കോടതി അംഗീകരിച്ചു ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസു കൾ ലോവർ പ്രൈമറിയായും ആറു മുതൽ എട്ടു വരെ ക്സാസു കൾ അപ്പർ പ്രൈമറിയായും പരിഗണിക്കാമെന്ന് കോടതി വൃക്ത മാക്കി മാനേജ്മെന്റ് പ്രതിനിധികളടക്കം നാൽപതോളം പേർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ ജനവിരുദ്ധ നയങ്ങളുമാ യി മുന്നോട്ടുപോകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെ ന്നിത്തല കുറ്റപ്പെടുത്തി പെട്രോൾ ഡീസൽ വിലവർധനയിലൂടെ കേന്ദ്ര ഗവൺമെന്റും വൈദ്യുതി നിരക്ക് വർധനയിലൂടെ സംസ്ഥാ ന ഗവൺമെന്റും ജനങ്ങളെ പിഴിയുകയാണ് കേന്ദ്ര പൂളിലെ വൈദ്യുതി പൂർണമായി പ്രയോജനപ്പെടുത്തിയും അയൽ സംസ്ഥാ നങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയും ലോഡ് ഷെഡിങ്ങും പവർക്കട്ടും ഒഴിവാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവ ശ്യപ്പെട്ടു മഴക്കാലത്തു തന്നെ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവ രേണ്ടി വന്നത് ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്നും പ്രതി പക്ഷ നേതാവ് ആരോപിച്ചു

മുൻ വർഷത്തെ പ്രളയ സാഹചര്യം ഡാമുകൾ വേണ്ട സമയത്ത് തുറന്നു വിടാത്തത് കൊണ്ടായിരുന്നു ഇത്തവണ മഴ വിലയിരുത്തി ആവ ശൃത്തിന് വെള്ളം സംഭരിക്കുന്നതിൽ ഗവൺമെന്റ് ശുഷ്കാന്തി പുലർത്താതുകൊണ്ടാണെന്ന് ചെന്നിത്തല പറഞ്ഞു കാരുണ്യ ബെനവലന്റ് പദ്ധതിയെ പറ്റി സംസ്ഥാന ആരോഗ്യമ ന്ത്രിക്കും ധനമന്ത്രിക്കും രണ്ട് അഭിപ്രായമാണെന്നും ചെന്നിത്തല വിലയിരുത്തി കാരുണ്യ പദ്ധതി നിലനിർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കൊച്ചി മരടിലെ അഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചുനീക്കണ മെന്ന ഉത്തരവിൽ പുനപരിശോധനാ ഹർജി സുപ്രിം കോടതിയിൽ

കഴിഞ്ഞ മെയ് എട്ടിനാണ് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചത് സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ട സാഹ ചര്യമില്ലെന്ന് കെ

ബി ചെയർമാൻ എൻ

സ്ഥിതി ഗതികൾ വിലയിരുത്താൻ കെ

സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തെ പ്രളയവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും പ്രളയം മനുഷ്യ നിർമ്മിതമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയും ഇവയിൽ ഉൾപ്പെടുന്നു ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമല സീതാരാമൻ ലോക്സഭയിൽ ഇന്ന് മറുപടി പറയും

അടുത്ത അഞ്ചു വർഷത്തിനകം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ അഞ്ച് ട്രില്ല്യൺ ഡോളറിൽ എത്തി ക്കുന്നതിന് ലക്ഷ്യമിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിർമല സീതാ രാമൻ കന്നി ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബജറ്റ് നിരാശാജനകമാണെന്ന് കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും അധിർരഞ്ജൻ ചൌദരിയും ചർച്ചയിൽ കുറ്റപ്പെടുത്തി പുതു തായി ഒന്നും ഇല്ലെന്നും പഴയ വാഗ്ദാനങ്ങളുടെ ആവർത്തനമാ ണെന്നും അവർ പറഞ്ഞു തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ബജ റ്റിൽ പദ്ധതിയില്ലെന്ന് ചൌദരി കുറ്റപ്പെടുത്തി

ലോകത്ത് പെട്രോളിന് ഏറ്റവും കൂടുതൽ പണം നൽകുന്നത് നമ്മുടെ രാജ്യ ത്താണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സാധാരണക്കാരെ ബാധിക്കുമെന്നും തരൂർ കുറ്റപ്പെടുത്തി കർണ്ണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നാവ ശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് രാജ്യസഭ ഉച്ചുവരെ നിർത്തി വെച്ചു സഭ സമ്മേളിച്ച ഉടൻ ശൂന്യ വേളയിൽ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ചെയർമാൻ എം വെങ്കയ്യ നായിഡു നിരസിച്ചതോടെ കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെക്കുകയായിരുന്നു ഇന്നലെ ഇതേ ആവശ്യത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളം കാരണം നട പടികളിലേക്ക് കടക്കാനാവാതെ രാജ്യസഭ പിരിഞ്ഞിരുന്നു അതിനിടെ കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി സുപ്രീംകോ ടതിയിലെത്തി സ്പീക്കർ മനപൂർവ്വം രാജിക്കത്ത് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണെന്ന് ആരോപിച്ച് പത്ത് വിമത എം

ഇവരുടെ ഹർജി നാളെ തന്നെ അടിയന്തിരമായി പരിഗണിക്കേണ്ടതുണ്ടോയെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ് ബ്ബെഞ്ച് തീരുമാനി ക്കും സ്പീക്കർ പക്ഷപാതത്തോടെ പെരുമാറുകയാണെന്നും അതു കൊണ്ടാണ് രാജിക്കത്ത് സ്വീകരിക്കാത്തതെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ രസ്തോഗി കോടതിയെ അറിയിച്ചു

എമാരിൽ ഒമ്പത് പേരുടെ രാജി ക്രമപ്രകാർമല്ലെന്ന് സ്പീക്കർ റൂൾ ചെയ്തി രുന്നു കർണാടക വിധാൻസൌധയ്ക്ക് മുന്നിൽ ബി ജെ പി എം എൽ എ മാർ ധർണ്ണ ആരംഭിച്ചു

എൽ എമാരുടെ രാജിക്കാര്യത്തിൽ തീരു മാനം വേഗത്തിലാക്കണമെന്ന് സ്പീക്കറോടാവശ്യപ്പെട്ടാണ് ധർണ്ണ ഉച്ചയ്ക്ക് ഗവർണറെ കാണുമെന്ന് ബി

പി നേതാവ് വി എസ് യെദിയൂരപ്പ അറിയിച്ചു മുംബൈയിൽ വിമത എം

എമാർ താമസിക്കുന്ന ഹോട്ടലിൽ മന്ത്രി ഡി

ഹോട്ടലിൽ താമസിക്കുന്ന വിമത എം എൽ എമാർ ശിവകുമാർ ഉൾപ്പെടെ നേതാക്കൾ തങ്ങളെ ഭീഷണിപ്പെടു ത്തുകയാണെന്ന് പൊലീസിൽ പരാതി നൽകിയിരുന്നു

ഹോട്ടലിൽ മുറി ബുക് ചെയ്തിട്ടുണ്ടെന്നും അവിടെ താമസിക്കുന്നവർ തന്റെ സഹോദരങ്ങളാണെന്നും ശിവ കുമാർ പറഞ്ഞു അതേസമയം ചില അടിയന്തര സാഹചര്യങ്ങളാൽ ശിവകുമാറിന്റെ മുറി ബുക്കിങ് റദ്ദാക്കിയതായി ഹോട്ടൽ അധികൃ തർ അറിയിച്ചു

നൈപുണ്യം നേടിയ യുവാക്കൾക്ക് സ്വന്തമായി ബിസിനസ്സ് സംരംഭങ്ങൾ ആരംഭിക്കാൻ മുദ്ര പോലെ വായ്പകൾ ലഭ്യമാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാ ബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു മഴയെ തുടർന്ന് തടസ്സപ്പെട്ട ലോകകപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ ന്യൂസിലൻഡ് സെമിഫൈനൽ മത്സരം റിസർവ് ദിനമായ ഇന്ന് പുനരാരംഭിക്കും മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകീട്ട് മൂന്നിനാണ് മത്സരം അതേ സമയം ഇവിടെ ഇന്നും മഴയ്ക്ക് സാധ്യ തയു ള്ള തായി റിപ്പോർട്ടു കളുണ്ട് മഴമൂലം ഇന്നും കളി നടന്നില്ലെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കൂടുതൽ പോയിന്റ് നേടിയ ഇന്ത്യ ഫൈനലിൽ കടക്കും

രണ്ടാം സെമിയിൽ നാളെ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡ്യൂറന്റ് കപ്പിൽ കേരളത്തിലെ ഏക ഐലീഗ് ടീമായ ഗോകുലം കേരള എഫ് സി പങ്കെടുക്കും അടുത്തമാസം എട്ടിന് സിലിഗുരിയിൽ ഐ എസ് എൽ ടീമായ ചെന്നൈയിൻ എഫ്സിയോടാണ് ഗ്രോകുലത്തിന്റെ ആദ്യമത്സരം രണ്ടിനാണ് ടൂർണമെന്റിന്റെ കിട്ടക്കോഫ് ഗോകുലം ഉൾപ്പടെ ആറ് ഐലീഗ് ക്ലബ്ബുകളും ആറ് ഐ എസ് എൽ ക്ലബ്ബുകളും മാറ്റുരക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ നേവി എയർഫോഴ്സ് ഇന്ത്യൻ ആർമി ടീമുകളും കളത്തിലിറങ്ങും സംയുക്ത കായിക അധ്യാപകസംഘടന സമര സമിതിയുടെ നേ തൃത്വത്തിൽ കോഴിക്കോട്ട് ഡി

കായിക അധ്യാപക തസ്തിക മാനദണ്ഡങ്ങൾ കാ ലോചിതമായി പരിഷ്കരിക്കുക തുല്യജോലിക്ക് തുല്യവേതനം അ നുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേ നം കോഴിക്കോട് ജില്ലാ റോളർ സ്കേറ്റിങ് ചാംപ്യൻഷിപ്പ് ആഴ്ചവട്ടം ഗവ ഹയർസെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച തുടങ്ങും

കല്ലായി പുഴയുടെ തീരത്ത് പുഴയെ വീണ്ടെടുക്കാൻ പുഴ സംര ക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകീട്ട് ജനകീയ ഐ കൃദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കും മുതിർന്ന കോൺഗ്രസ് നേതാ വ് വി

കൈയേറ്റങ്ങൾ കൊണ്ടും മലിനീകരണം കൊണ്ടും നശിക്കുന്ന പുഴയെ സംരക്ഷിക്കുകയാ ണ് പരിപാടിയുടെ ലക്ഷ്യം എൻഡോസൾഫാൻ ദൂരിത ബാധിതർക്കായി ഇന്ന് കാസർകോട്ട് പ്രത്യേക മെഡിക്കൽ ക്യാംപ് നടത്തും

പട്ടികയിൽ പെടാത്ത വർക്കായി ഈ മാസം തന്നെ മറ്റൊരു ക്യാംപ് സംഘടിപ്പിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു സംസ്ഥാന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിന്റെ തകഴി അനുസ്മരണ സമ്മേളനം മറ്റന്നാൾ നടക്കും കേരള സാഹിത്യ അക്കാദമി വൈസ്പ്രസിഡന്റ് ഡോ

എൻ കുറുപ്പിനെ ചടങ്ങിൽ ആദരിക്കും

ഖബ റടക്കം വൈകീട്ട് തോപ്പയിൽ പള്ളി ഖബർസ്ഥാനിൽ നടക്കും

ഇടിയുടെ ആഘാതത്തിന് നിയന്ത്രണം വിട്ട ബസ്സ് പാടത്തേക്ക് മറിഞ്ഞു പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു മുളയങ്കാവ് കാക്കശ്ശേരി പള്ളിയാലിൽ ഷാഹിൻ ഷാ നടുവിൽപീടികയിൽ ജാസിർ എന്നിവരാണ് മരിച്ചത്